കർണാടകയിൽ പത്ത് വിമത എം എൽ എമാരോട് സ്പീക്കറിനു മുന്നിൽ ഹാജരാകാൻ സുപ്രീംകോടതി നിർദ്ദേശം രാജിക്കാര്യത്തിൽ ഇന്നു തന്നെ തീരുമാനമെടുക്കണമെന്ന് സ്പീക്കർക്കും നിർദ്ദേശം നല്കി

എൽ

പ്രളയാനന്തര കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിൽ ഉന്നത ഗുണനിലവാരം ഉറപ്പാക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

എൽ

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ്

എ

എൽ

മാരുടെ രാജികാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കാനും സ്പീക്കർക്ക് പരമോന്നത നീതിപീഠഠ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാനും കോടതി സ്പീക്കറോട് ആവശ്യപ്പെട്ടു അതിനിടെ ബി ജെ

യിൽ കർണാടക നിയമസഭാ കക്ഷിയോഗം ഇന്ന് ബംഗളൂരൂവിൽ രാഷ്ട്രീയ സ്ഥിതി ഗതികൾ വിലയിരുത്തും

കുമാരസ്വാമിയും രാജി സമർപ്പിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്യും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട കുമാരസ്വാമി മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ അവകാശം ഇല്ലെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെപി പ്രതിനിധി സംഘം ഇന്നലെ ഗവർണറെ കണ്ടിരുന്നു

എൽ എ

ന്യൂസ്ഡസ്ക് ആകാശവാള

ദിനി സോളങ്കിക്കും മറ്റ് ആറ് പേർക്കും വിവരാകാശ പ്രവർത്തക അമിത് ജെത്വായുടെ വധവുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ ദിനു സോളങ്കിയുടെ മരുമകൻ ശിവ സോളങ്കി വിധിച്ചു ഷൈലേഷ് പാണ്ഡൃ ബഹദൂർ സിംഗ് വാദർ പഞ്ചൻ ദേശായ് സഞ്ജയ് ചൌഹാൻ ഉദാജി താക്കൂർ തുടങ്ങിയവർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു

കേസിൽ നേരത്തെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചിന്റെ നിർദ്ദേശം മൂന്നംഗ മധ്യസ്ഥ സമിതിയിലെ അധ്യുക്ഷ്ടൻ ജസ്റ്റിസ് എഫ്

ഐ ഖലീഫുള്ളയോട് ഈ മാസപ്പിച്ച് ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി അഭ്യർത്ഥിച്ചു

എൽ എ മാർ ബി ജെ

ന്യൂഡൽഹിയിൽ പാർട്ടി അദ്ധ്യക്ഷൻ ജെ

നദ്ദയുടെ സാന്നിദ്ധ്യത്തിലാണ് എംഎൽഎമാർ ബിജെപി അംഗത്വം സ്വീകരിച്ചത് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും സന്നിഹിതനായിരുന്നു

റെയിൽവേ വികസനത്തിനായി കേന്ദ്രഗവണ്മെന്റ് നടപടികൾ അപര്യാപ്തമാണെന്നും കൂടുതൽ സഹായധനം അനുവദിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗം അധീർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു

ഇന്നലെ മാൽബറോ ഹൌസിൽ നടന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ്

ബ്രിട്ടൺ സന്ദർശന വേളയിൽ ജയശങ്കർ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹണ്ടുമായി ഉഭയകക്ഷി ചർച്ച നടത്തി

ബി

ഇന്ദിരയും ഭർത്താവ് ആനന്ദ് ഗ്രോവറും ചേർന്ന് നടത്തുന്ന സ്ടന്നദ്ധ സംഘടനയുടെ ഓഫീസിലും റെയ്ഡ് നടത്തി ജയ്സിങ്ങിന്റെ നിസാമുദീനിലെ വസതിയിലും മുംബൈയിലെ ജങ്ങ്പ്പ്പ്ര്രയിലെ ഓഫീസിലും ഇന്ന് പൂലർച്ചെ മുതലാണ് സി ബി

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾക്ക് തുടർച്ചയായി മികച്ച പരിശീലനം നൽകി അവരെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഖേലോ ഇന്ത്യ പദ്ധതി

രം തിരുവന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായികുന്നു അദ്ദേഹം സമയബന്ധിതമായ നിർമാ ണപ്രവർത്തനങ്ങൾ ഉറപ്പു വരുത്തും

ലോക ജനസംഖ്യാദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സാധാരണ ജനങ്ങളിലേക്ക് അനുയോജ്യമായ ആശയവിനിമയത്തിലൂടെ ജനസംഖ്യ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും

വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രതിപാദിച്ച് ലോക്സഭയിലെ ശൂന്യവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളാ സംസ്ഥാന ഗവണ്മെന്റ് പ്രഖ്യാപിച്ച മോറട്ടോറിയം നീട്ടാൻ ആർബിഐക്ക് കേന്ദ്ര ഗവണ്മെന്റ് നിർദ്ദേശം നൽകണമെന്ന് രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു രാജ്യത്തെ കർഷകരുടെ ദുരിതം അകറ്റാനുള്ള ഒരു നടപടികളും കേന്ദ്രബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം ആരോപിച്ചു

രാജ്യസഭയിൽ കേന്ദ്രബജറ്റ് സംബന്ധിച്ച ചൂർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൊത്ത വരുമ്ടൂന്റ് ചെലവ് ധനക്കമ്മി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ആദ്യത്തെ ബജറ്റാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബ നിക്ഷേപങ്ങൾ ഉയർത്തുന്നതിനാവശ്യമായ യാതൊരു നടപടികളും ബജറ്റിലില്ല റോഡ് നിർമ്മാണം വെളിയിട വിസർജ്ജന നിർമ്മാർജ്ജനം തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കുന്നതിൽ ഗവണ്മെന്റ് പരാജയപ്പെട്ടതായും മുൻ ധനമന്ത്രി കുറ്റപ്പെടുത്തി

ധേമാജി ലാഖിംപൂർ ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്